ഉത്തർപ്രദേശിലേയും ്രപിഞ്ചാബിലേയും വിവിധയിടങ്ങളിൽ ഐ

ശ്രമിക്കുകയാണെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് സെക്രട്ടറി അമിത് ഖാരെ

ആലപ്പാട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സമരസമി തിയുമായി ഗവൺമെന്റ് ഇന്ന് നടത്തിയ ചർച്ചു ഫലം കണ്ടില്ല

ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ നാളെ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും

സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആന്റ് റിസർച്ച് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി എയർ ആംബുലൻസ് ഉൾപ്പെടെ എല്ലാവിധ അത്യാധുനിക സൌകരൃങ്ങളും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ നിർമ്മിച്ച ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലുണ്ട് പതിവായി മരുന്ന് കഴിക്കുന്നവർക്ക് ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി വില കുറച്ച് മരുന്ന് ലഭ്യമാകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു മെഡിക്കൽ കോളേജ് എന്നതാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്

നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒൻപതാമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ ഭാഗമാണ് വ്യാപാര പ്രദർശനം പ്രദർശനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഏതാനും പ്രദർശനശാലകളും സന്ദർശിച്ചു

ഇന്ത്യൻ സിനിമയുടെ ചരിത്രം മ്യൂസിയത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം

ഉത്തർപ്രദേശിൽ അംറോഹ ഹപൂർ മീററ്റ് ബുലന്ദ്ഷഹർ എന്നിവിടങ്ങളിലാണ് തെരച്ചിൽ നടത്തിയത്

എസുമായി ബന്ധപ്പെട്ട അനുബന്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തനായിരുന്നു തെരച്ചിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള ഹർകത് ഉൾ ഹർബ് ഇ ഇസ്താം എന്ന പ്രത്യേക ഭീകര സംഘടനയിലെ അംഗങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞമാസം ഡൽഹി അംറോഹ ലക്നൌ മീററ്റ് ഹപൂർ എന്നിവിടങ്ങളിൽ ദേശീയ അന്വേഷണ ഏജ്ജൻസി തെരച്ചിൽ നടത്തിയിരുന്നു അന്ന് പത്തുപേരെ ആറ്റ്റ്റ് ്ചെയ്തിരുന്നു ഉന്നത രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യമിട്ടും ഡ്ട്ര്ലഹിയിലെ തിരക്കേറിയ പ്രദേശങ്ങളിലും സുരക്ഷാ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്താൻ സംഘന പദ്ധതിയിട്ടിരുന്നു

ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി അതിനിടെ തെക്കൻ കാശ്മീരിലെ കുൽഗാമിൽ നിന്നും ഒരു ലഷ്കർ ഭീകരനെ സുരക്ഷാ സേന പിടികൂടി

ഇന്ന് പുലർച്ചെ പൂഞ്ച് ജില്ലയിലെ ഗുൽപൂർ സെക്ടറിലാണ് പാക്സേന വെടിനിർത്തൽ ലംഘനം നടത്തിയത് പൂഞ്ച് ജില്ലയിലെ ഹാവേലി തെഹ്സിലിലെ ഗുൽപൂർ മേഖലയിൽ പാക്സേന യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവയ്പ് നടത്തുകയായിരുന്നു ഇന്ത്യൻ പോസ്റ്റുകളും ജനവാസ മേഖലയും ലക്ഷ്യമിട്ടാണ് വെടിയുതിർത്തതെന്ന് സൈനിക വക്താവ് അറിയിച്ചു

അരമണിക്കൂറോളം നീണ്ട വെടിവയ്പിൽ ഇന്ത്യൻ ഭാഗത്ത് ആളപായമുണ്ടായിട്ടില്ല

ഭൌമ പ്രക്ഷേപണ രംഗവുമായി ബീഡ്ഡപ്പെട്ട് രാജ്യാന്തര സമ്മേളനവും പ്രദർശനവും ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിത് പ കൂടുതൽ വിവരങ്ങളുമായി തുളസിദാസ്

പ്രക്ഷേപണ മേഖല വളരുകയാണ് സാങ്കേതിക വിദ്യയുടെ പുരോഗതി പ്രത്യേക അവസരങ്ങളും ഒപ്പം വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ടെന്ന് ശ്രീ

പ്രക്ഷേപണ രംഗത്തെ വിപ്ലവം മൂലം നൂറ് കോടിയിലധികം ജനങ്ങൾക്ക് റേഡിയോ പരിപാടികൾ കേൾക്കാനാകുന്നുണ്ട് പ്രക്ഷേപണ രംഗത്ത് ദേശീയനയം കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയാണ്

ദേശീയ ചാനലുകൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്നും വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സെക്രട്ടറി പറഞ്ഞു വലിയ തോതിലുള്ള സാങ്കേതിക വളർച്ചമൂലം ചാനലുകളും ഉള്ളടക്കങ്ങളും തെരഞ്ഞെടുക്കാനുള്ള സൌകര്യം ഇപ്പോൾ ഉപയോക്താക്കൾക്ക് ഉണ്ടെന്ന് സമ്മേളനത്തിൽ സംസാരിക്കവെ ട്രായ് ചെയർമാൻ ആർ

പ്രക്ഷേപണ മാദ്ധ്യമം ആശയങ്ങളും മൂല്യങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നു വിനോദം മാത്രമല്ല വാർത്തകളും വൃത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നു ജനങ്ങളെ ബോധവത്ക്കരിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ശക്തിപ്പെടുത്തുകയും പ്രക്ഷേപണ മാധ്യമം ചെയ്യുന്നുണ്ടെന്ന് ട്രായ് ചെയർമാൻ പറഞ്ഞു

മന്ത്രി ഇ

വിദഗ്ധ സ്മിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെയാണ് നിയന്ത്രണം

സമരം അവസാനിപ്പിക്കണമെന്ന് സമര സമിതിയോട് ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ഖനനത്തിന്റെ പരി സ്ഥിതി ആഘാതത്തെപ്പറ്റി പഠിക്കാൻ ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായ റ്റി

സമരം പിൻവലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി ജയരാജൻ പറഞ്ഞു അതേസമയം ഗവൺമെന്റ് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെന്നും കരിമണൽ ഖനന ത്തിനെതിരെയുളള സമരം തുടരുമെന്നും സമരസമിതി അറിയിച്ചു

പർമാരത് നികേതൻ ഹരിജൻ സേവക് സംഘ് ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്നു വാഷ് സഖ്യം എന്നിവ ചേർന്നാണ് ഉച്ചകോടി സംഘടിപ്പിച്ചിട്ടുള്ളത്

തുക കെട്ടിവച്ച ശേഷം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ട്രിബ്യൂണൽ അംഗം ജസ്റ്റിസ് എസ്

വിഷയത്തിൽ സുപ്രീംകോടതി ഇടപെട്ട പശ്ചാത്തലത്തിൽ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ട്രിബ്യൂണൽ മാറ്റിച്ചു